കേരളത്തിൽ കാലവർഷം ശക്തമായി ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട്മോറിസണുമായി നടത്തിയ ആദ്യ വിർച്ചൽ ഉച്ചുകോടിയിലാണ് തീരുമാനം ഏഴ് കരാറുകളിലും ഒപ്പു വച്ചു മെഡിക്കൽ രംഗത്തെ ഗവേഷണം വികസനം ആഗോളമായി പകർച്ചവ്യാധി തടയൽ തുടങ്ങിയ രംഗങ്ങളിൽ ഇരുകൂട്ടരും സഹകരിക്കും കോവിഡ് പ്രതിരോധത്തിനായി ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖലകളിലും സഹകരിക്കും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ സൈബർ സുരക്ഷ നവ സാങ്കേതിക വിദ്യ എന്നിവയിലും ചേർന്ന് പ്രവർത്തിക്കും

കപ്പൽ

രോഗബധിതർ ഏറ്റവും കൂടുതലുള്ള മഹാരാഷ്ട്രയിലാണ്

പരമേശ്വരൻ

നേരത്തെ മരിച്ച മുന്നു പേർക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് മരണസംഖ്യ വർധിച്ചത് പാലക്കാട് സ്വദേശി മീനാക്ഷിയമ്മാൾ കൊല്ലം സ്വദേശി സേവൃർ മലപ്പുറം സ്വദേശി ഷബ്നാസ് എന്നിവരാണ് കോവിഡ് ബാധിച്ചത് മരിച്ചത്

അടുക്കുകയാണ്

രോഗികളുടെ എണ്ണത്തിൽ അമേരിക്കയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിൽ രോഗബാധിതരുടെ എണ്ണം ആറ് ലക്ഷത്തോടടുക്കുന്നു

ഇന്റേൺഷിപ്പിന് പുറണെ നഗര വികസനം ട്രാൻസ്പോർട്ട് എഞ്ചിനീയറിംഗ് പരിസ്ഥിതി മുനിസിപ്പൽ ഫിനാൻസ് തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാനുള്ള അവസരമാണു വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്

കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പൊലിമ കുറിച്ചിട്ടുണ്ടെങ്കിലും രാജ്യമൊട്ടാകെ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സിനു

വനംവകുപ്പ് തയ്യാറാക്കിയ വൃക്ഷത്തൈകളുടെ സംസ്ഥാനതല വിതരണത്തിന് വനംമന്ത്രി അഡ്വ കെ രാജു തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രവളപ്പിൽ രാവിലെ തൈ നട്ടുകൊണ്ട് തുടക്കമിടും

പത്ത് വർഷത്തേക്കാണ് വിലക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇവരെ കരിമ്പട്ടികയിൽ പെടുത്തുകയും വിസ റദ്ദാക്കുകയും ചെയ്തിരുന്നു

കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്